സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികദിനം ഇന്ന് ദേശീയ യുവജനദിനമായി ആഘോഷിക്കുന്നു

ജോലിയിൽ അലംഭാവം കാണിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ

ഗോഹട്ടിയിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പുരോഗമിക്കുന്നു

കൊച്ചി മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കുന്ന തിന്റെ രണ്ടാംഘട്ടം ഇന്ന് നടക്കും ജയ്ൻ കോറൽകോവും ഗോൾഡൻ കായലോരവും പൊളിക്കുന്നതോടെ സുപ്രീംകോടതിവിധി പൂർണമായി നടപ്പാകും

ഇന്നലെ ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ ഏർപ്പെടുത്തിയ അതേ നടപടിക്രമങ്ങളായിരിക്കും ഇന്നും കനത്ത സുരക്ഷാ നടപടികൾ എടുത്തിട്ടുണ്ട് രാവിലെതന്നെ രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ സമീപവാസികളെ ഒഴിപ്പിക്കുകയും ഗതാഗതനിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും ഇന്നലത്തെ ദൌത്യാ വിജയകരമായിരുന്നുവെന്ന് ജില്ലാ ഭരണകൂടവും വിദഗ്ധരും അറിയിച്ചു

ഇന്ത്യൻ തത്വചന്തയും വേദാന്തവും യോഗയും ലോകത്തിന് പരിചയപ്പെടുത്തിയത് സ്വാമി വിവേകാനന്ദനാണ്

രാമകൃഷ്ണമഠത്തിന്റെയും രാമകൃഷ്ണ മിഷന്റെയും സ്ഥാപകൻകൂടിയായിരുന്നു അദ്ദേഹം ഇന്തൃൻ സംസ്കാരത്തിന്റെ ഉന്നതിക്കായി സ്വാമി വിവേകാനന്ദൻ നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൊൽക്കത്തയിൽ അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഇന്നും പ്രസക്തമാണെന്ന് വിവേകാനന്ദ പ്രതിമ അനാഛാദനവേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞു രാവിലെ രാമകൃഷ്ണ മിഷൻ ആസ്ഥാനമായ ബേലൂർ മഠത്തിൽ നടക്കുന്ന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അഞ്ച് ദിവസത്തെ ദേശീയ യുവജനോത്സവം ലഖ്നൌവിൽ കേന്ദ്രമന്ത്രി കിരൺ റിജുവും യു

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ദേശീയ യുവജനദിനാഘോഷത്തോടനുബന്ധിച്ച് രാജൃവ്യാപകമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും കോഴിക്കോട്ട് ജനജാഗരണസമിതി പൌരത്വനിയമഭേദഗൃതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഗരത്തിൽ കൂട്ടയോട്ടം നടത്തും ആദിവാസി സമൂഹത്തിന്റെ കായികാഭിരുചി വർധിപ്പിക്കാൻ ഇന്ന് യുവജനദിനത്തിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ട്രൈബൽ ക്രോസ്കൺട്രി റൺ സംഘടിപ്പിക്കും മട്ടത്തുകാട് ഐ ടി ഐ

ഹയർസെക്കൻഡറി സ്കൂളിൽ സമാപിക്കും

പോർട്ട് ട്രസ്റ്റിലെ ഏറ്റവും പ്രായമേറിയ രണ്ട് പെൻഷൻകാരെ ചടങ്ങിൽ പ്രധാനമന്ത്രി ആദരിക്കും

ചടങ്ങിൽ മന്ത്രി എ

ശശീന്ദ്രൻ അധൃക്ഷനായിരിക്കും

സംസ്ഥാന ജനമൈത്രി പോലീസിന്റെ കവചം സുരക്ഷാ പദ്ധതിയും നാളെ രാവിലെ കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്താനാണ് കവചം പദ്ധതി നടപ്പാക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സൌരോർജ്ജ പദ്ധതി ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയ്യൻ ഉദ്ഘാടനം ചെയ്യും

സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ടപ്പോഴൊക്കെ ശക്തമായ നിലപാടെടുത്ത പത്രാധിപ്രായിരുന്നു കെ സുകു മാരനെന്ന് കേന്ദ്ര സഹമന്ത്രി വി

ധീരമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച വൃക്തിയായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട്ട് കൌമുദി നൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി മുരളീധരൻ ജോലിയിൽ അലംഭാവം കാണിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ

ഇവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സമൂഹം ശ്രമിക്കണമെന്ന് അവർ പറഞ്ഞു തിരൂർ ജില്ലാ ആശുപത്രിയിൽ നവീകരിച്ച ഒ

കൌണ്ടറും കൃത്രിമ അവയവ നിർമാണ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഗവൺമെന്റ് നയങ്ങളെ എതിർക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് യോഗത്തിനുശേഷം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ കോൺഗ്രസ് വൃക്തമാക്കി പൌരത്വനിയമ ഭേദഗതിക്ക് അനൂകൂലമായ പ്രചാരണത്തിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് മധ്യപ്രദേശിലെ ജബൽപ്പൂരിലെ പൊതുചടങ്ങിൽ പങ്കെടുക്കും ദേശീയ പൌരത്വ രജിസ്റ്റർ നിയമഭേദഗതി എന്നിവ അദ്ദേഹം വിശദീകരിക്കും

രാമകൃഷ്ണൻ കോഴിക്കോട് അത്തോളിയിൽ പറഞ്ഞു

വഴിയാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രങ്ങളും നിർമിക്കും ലൈഫ് പദ്ധതിയിലെ ഭവനനിർമാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് നൽകേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്ന് മന്ത്രി എം

മണി പറഞ്ഞു കൽപ്പറ്റ നഗരസഭ ലൈഫ് പി എം എ

ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലൈഫ് പദ്ധതിയിൽ അർഹരായ എല്ലാവർക്കും മൂന്ന് മാസത്തിനകം സ്വന്തമായി വീട് ലഭ്യമാക്കുമെന്ന് മന്ത്രി ഇ

ജയരാജൻ അറിയിച്ചു

കണ്ണൂരിലെ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മൊയ്തീൻ പറഞ്ഞു തൃശൂർ ജില്ലയിലെ ചൊപ്പന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും അദാലത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ജിംനാസ്റ്റിക് അത്ലറ്റിക് സൈക്ലിങ് ടേബിൾ ടെന്നിസ് മത്സരങ്ങൾ ഇന്ന് നടക്കും ഗെയിംസ് രണ്ട് ദിവസം പിന്നിട്ടപ്പോൾ ഏഴ് സ്വർണവും ഏട്ട് വെള്ളിയുമായി മഹാരാഷ്ട്രയാണ് മുന്നിൽ ആറ് സ്വർണത്തോടെ ഉത്തർപ്രദേശ് രണ്ടാംസ്ഥാനത്തുണ്ട് കേരളത്തിനുവേണ്ടി എ

അഭിരാമി വെങ്കലവും നേടി

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് എ ടി

കൊൽക്കത്തയെ നേരിടും

കേരള പ്രീമിയർലീഗ് ഫുട്ട്ബോളിൽ ഗോകുലം കേരള എഫ്

ഇതോടെ ഗ്രൂപ്പിൽ നാല് മത്സരത്തിൽനിന്ന് മൂന്ന് വിജയത്തോടെ ഗോകുലം ഒന്നാമതെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ കേരളം മുന്നേറുന്നു

നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യത്തോടെയാണ് ആർദ്രം കാമ്പയിൻ നടപ്പാക്കുന്നത്

എന്ത് വിലകൊടുത്തും കേരളം മതേതരത്വം സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ

എല്ലാ മതവിശ്വാസികളും ഒത്തുചേർന്ന് പൌരത്വ രജിസ്റ്ററിനെ എതിർക്കുമെന്ന് അവർ മലപ്പുറം കോട്ടക്കലിൽ പറഞ്ഞു കോട്ടക്കൽ ആരൃവൈദൃശാല സ്ഥാപകൻ വൈദൃരത്നം പി

വയനാട് ജില്ലയിൽ വൈദ്യുതിഭവൻ സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി എം

ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് വൈദ്യുതി അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ നിർവഹിച്ചമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വൈദ്യുതിഭവൻ ഇല്ലാത്ത ഏക ജില്ലയാണ് വയനാട്

പാലക്കാട് തരൂരിൽ കെ

കേശവമേനോൻ ചരിത്ര പഠന ഗവേഷണകേന്ദ്രം മന്ത്രി എ

എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വായനശാലകൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും രാഷ്ട്രീയത്തിന് അപ്പുറം പ്രാധാനൃം ഗവൺമെന്റ് നൽകിവരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആലത്തൂർ വാനൂരിൽ സാംസ്കാരികവകുപ്പ് നിർമിച്ച സ്വാതന്ത്ര്യസമരസേനാനി ആർ കൃഷ്ണൻ സ്മാരക സാംസ്കാരിക നിലയവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സായ ബാവലിപ്പുഴയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്തു

വരും നാളുകളിൽ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് ജലസ്രോതസ്സുകളുടെ ശുചീകരണം നടപ്പാക്കുന്നത്